രേഖപ്പെടുത്തി

ഹയർ സെക്കൻ ്യറി പ്രീക്ഷാ ഫലപ്രഖ്യാപനം ഉച്ചയ്ക്ക് രണ്ടിന്റ് സി ബി എസ് ഇ പത്താം ക്സാസ് ഫലവും ഇന്ന്

പരീക്ഷ നാളെ

ധനബിൽ പാസാക്കാനാണ് ഒരു ദിവസത്തേക്ക് സഭ ചേരുന്നത്

കോവിഡ് പ്രതിസന്ധി നിലനിൽക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സഭ സമ്മേളിക്കുക

മൂവ്ട്ട്റ്റുപ്പുഴ സ്വദേശി ജലാൽ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ഷാഫി അംജിത് അലി എന്നുവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇവരെ ഇന്ന് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃതൃങ്ങൾക്കായുള്ള കോടതിയിൽ ഹാജരാക്കും അതിനിടെ നേരത്തെ എൻ

എ അറസ്റ്റ് ചെയ്ത സന്ദീപിന്റെ ബാഗ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും നേരത്തെ കെ ടി

അതേസമയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുൻ ഐ ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്നു എം

കസ്റ്റംസിന് പുറമെ റവന്യൂ ഇന്റലിജൻസ് വിഭാഗവും ശിവശങ്കറിനെ ചോദ്യം ചെയ്തു

ഉച്ചക്ക് രണ്ടിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി സി

ഫലം ഇൻഫർമേഷൻ പബ്ളിക് റിലേഷൻസ് വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പി

എസ്

വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരിലേക്കും ഇ മെയിൽ ഐ ഡി കളിലേക്കും ഫലം അയച്ചു നൽകും

മാർക്ക് ഷീറ്റ് മൈഗ്രേഷൻ സ്കിൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഡിജി ലോക്കറിൽ ലഭൃമാകും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പരീക്ഷകളുടെ മാർക്കിന്റെ ശരാശരിയെ അടിസ്ഥാന മാക്കിയും ഇന്റേണൽ മാർക്കും കണ്ടക്കിലെടുത്താണു ഫലം തയാറാക്കിയിരിക്കുന്നത്

ദില്ലിയിലെ വിദ്യാർഥികൾക്ക് ഫരീദാബാദ് ജെ

എസ് ആർ ടി സി പ്രത്യക സർവീസ് നടത്തും ശബരിമല കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നത് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ ശ്രീകോവിൽ തുറന്ന് ദീപം തെളിക്കും

നാളെ പുലർച്ചെ അഞ്ചിന് നിർമാല്യത്തിന് ശേഷം പതിവ് പൂജകൂൾ നടക്കും കർക്കിടക വാവ് ദിവസമായ തിങ്കളാഴ്ച പമ്പൂയിൽ ് പിതൃതർപ്പണത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ജില്ലാ കളക്ടർ ശ്രീറാം സാംബശിവ റാവു ആണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്

ഞായറാഴ്ചകളിൽ അവശ്യവസ്തുക്കളുടെ കടകളും മെഡിക്കൽ ഷോപ്പുകളും മാത്രമേ തുറക്കാൻ അനുവദിക്കൂ വൈദ്യസഹായത്തിനും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പൊതുജനങ്ങൾ യാത്ര ചെയ്യാൻ പാട്ടില്ല

കോവിഡ് സ്ഥിരീകരിച്ച പാലാ മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ ഡിപ്പോയിൽ എത്തിയ സാഹചരൃത്തിലാണ് രാവിലെ ഡിപ്പോ അടച്ചിട്ടത്